ഗവൺമെന്റ് ബഹുമുഖ സംവിധാനം ഏർപ്പെടുത്തി

നേടുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരനായി ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഇന്ത്യ സെമി ഫൈനലിൽ

റ്റോഡ് എന്നിവയുടെ നിർമ്മാണവും ഫ്ളഡ് ലൈറ്റുകൾ സ്ഥാപിക്കലും പുരോഗമിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി

അനധികൃത കുടിയേറ്റക്കാർക്ക് ആധാർ കാർഡുകൾ ലഭിക്കാതിരിക്കാൻ സംസ്ഥാനങ്ങളിലേയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേയും ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ടി

വരുംവർഷങ്ങളിൽ ഐ ടിമേഖലയിൽ മറ്റ് വികസിത രാജ്യങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്രായും അദ്ദേഹം പറഞ്ഞു നൂതന സാങ്കേതിക വിദ്യയും നൈഷ്ടുണ്ടുവും പ്രയോജനപ്പെടുത്തി രാജ്യത്ത് നാലാമത് വ്യാവസായിക്ക്പ്പിപ്ലവത്തിന് നേതൃത്വം നൽകാൻ കേന്ദ്രമന്ത്രി യുവാക്കളെ ആഹ്യാന്ം ചെയ്തു

എക്സിം ബാങ്ക് എസ് ബി ഐ യൂണിയൻ ബാങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള ബാങ്കുകൾക്ക് എതിരെയുള്ള പരാതികളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിരവധി സ്ഥകാര്യ കമ്പനികൾ അവയുടെ പ്രമോട്ടർമാർ ഡയറക്ടർമാർ പേര് വെളിപ്പെടുത്താത്ത ചില പൊതുജന സേവകർ എന്നിവർക്കെതിരേയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡൽഹി മുംബൈ ലുധിയാന താനെ പൂനെ പളനി ഗയ ഗുരുഗ്രാം ചണ്ഡിഗഡ് ഭോപ്പാൽ സൂറത്ത് കൊല്ലാർ അലിഗഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്

ആഭ്യന്തരമന്ത്രിയായി ചുമ്തുലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വൻ വിജയത്തിന് ശ്രീ അമിത് ഷായ്ക്ക് പാർട്ടി ഊഷ്മളമായ സ്വീകരണം നൽകുമെന്ന് സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് ജീത്തു വഘാനി അറിയിച്ചു അഹമ്മദാബാദിലെ ആശ്രാമംറോഡിൽ പുതുതായി നിർമ്മിച്ച മേൽപ്പാലം ശ്രീ അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും തന്റെ ലോക്സഭാ മണ്ഡലമായ ഗാന്ധിനഗറിൽ പുതുതായി നിർമ്മിച്ച കമ്യൂണിറ്റി ഹാൾ ലൈബ്രറി അഞ്ച് റവന്യൂ ഓഫീസുകൾ എന്നിവയും ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും

പശ്ചിമബംഗാളിൽ അടുത്തിടെയുണ്ടായ രാഷ്ട്രീയ അക്രമങ്ങൾ സംബന്ധിച്ചും കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടികളേയും ബംഗളുരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെയും കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രമേഷ് പൊഖ്രിയാൽ അഭിനന്ദിച്ചു

അണക്കെട്ടിന് സമീപമുള്ള ഏഴ് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി ദേശീയ ദൂരന്ത നിവാരണ സേന മേഖലയിൽ എത്തി സുരക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്

ഐസ്വാൾ നഗരത്തിന്റ് സമീപം ബി പി എൽ പാർപ്പിട സമുച്ചയത്തിന്റെ നാല് ഭ്ബ്ലാക്കുകൾ ഇന്നലെ വൈകിട്ട് മണ്ണിടിച്ചിലിൽ തകർന്ന് വീണായിരുന്നു ദുരന്തം എട്ട് പേർക്ക് പരിക്കേറ്റു

കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന അതിശ്ക്തമായ മഴയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഖലീഫ ഹിഫ്റ്റർ നേതൃത്വം നൽകുന്ന ലിബിയൻ നാഷണൽ ആർമിയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യു എന്നിന്റെ പിന്തുണയുള്ള ഗവൺമെന്റ് ആരോപിച്ചു നിലവിൽ രാജ്യത്തിന്റെ കിഴക്ക് ദക്ഷിണ മേഖലയിൽ ശക്തി പ്രാപിച്ചിരിക്കുന്ന തീവ്രവാദ സംഘടനയാണ് ലിബിയൻ നാഷണൽ ആർമി

ലോകകപ്പിൽ ഏറ്റവുമധികം സെഞ്ചറികൾ എന്ന റെക്കോർഡിനൊപ്പമെത്തിയ രോഹിത് ശർമ്മയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായത്

ഇതോടെ ശ്രീലങ്ക്യുടെമുൻതാരം കുമാർ സംഗകാര കുറിച്ച ലോകകപ്പ് റിക്കോർഡിനൊപ്പം രോഹിത് ശർമ എത്തി

ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അമേരിക്ക ഇംഗ്ലണ്ടിനെ കീഴ്പ്പെടുത്തിയത്

ക്രിസ്റ്റീൻ പ്രസും അലക്സ് മോർഗനുമാണ് അമേരിയ്ക്കയ്ക്കുവേണ്ടി രണ്ട് ഗോളുകൾ നേടിയത്

സമുദ്ര അതിർത്തി കടന്ന് അനധികൃതമായി നങ്കൂർമിട്ടതിന് ഇന്തൃൻ നാവികരെ ഫെബ്രുവരിയിൽ ഇന്തോന്നേഷ്യ തടവിലാക്കിയെന്നാണ് റിപ്പോർട്ട്

സംഘടന ബലൂചിസ്ഥാനിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്